ത ആദ്യം രോഗം സ്ഥിരീകരിച്ച കോട്ടയം ജില്ല കോവിഡ് മുക്തമായി

വാർത്തകൾ വിശദമായി രാജ്യം ലോക്ഡൌണിലായിരിക്കുമ്പോൾ ആരും പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു

ഉപരാഷ്ട്രപതി എം

ഡൽഹിയിലെ ആനന്ദ് വിഹാറിൽ കുടിയേറ്റ തൊഴിലാളികൾ സംഘം ചേർന്നതിനും നിസാമുദ്ദീനിൽ തബ് ലീഗ് ജമാഅത്തുകാർ സമ്മേളിച്ചതിലും ആശങ്കയറിയിച്ച രാഷ്ട്രപതി രണ്ട് സംഭവങ്ങളും പരിശ്രമങ്ങൾക്ക് തിരിച്ചടിയായെന്ന് ഗവൺമെന്റിന്റെ അഭിപ്രായപ്പെട്ടു ദേഴ കൊറോണ വൈറസ് രോഗ വ്യാപനം വലിയ തോതിൽ പിടിച്ചു നിർത്താൻ സംസ്ഥാനത്തിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഒറ്റക്കെട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ് ഇതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

കണ്ണൂരിൽ അഞ്ചും കാസർകോട് മൂന്നും ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ രണ്ട് വീതവും പത്തനംതിട്ടയിലും കോട്ടയത്തും ഓരോരുത്തരുമാണ് ആശുപത്രി വിട്ടത്

ആകാശവാണി പ്രതിനിധി പി

കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികിൽസയിലായിരുന്ന ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ഭേദമായതോടെ ജില്ലയിൽ നിലവിൽ രോഗികളായി ആരും അവശേഷിക്കുന്നില്ല കഴിഞ്ഞ ദിവസം രോഗം ഭേദമായ റാന്നി സ്വദേശികളായ വൃദ്ധദമ്പതികൾ ആശുപത്രി വിടുകയും ചെയതു

കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ കണ്ണൂർ പ്രതിനിധി കെ

ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ നൽകുന്ന റിപ്പോർട്ട്

സി ജയചന്ദ്രൻ

എസ്

സി ബസ് കണ്ടക്ടറുമായ വ്യക്തിയുടെ രണ്ടാമത്തെ സാമ്പിൾ പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നവരുടെ പരിശോധനാഫലവും നെഗറ്റീവ് ആണ്

നിരീക്ഷണം ഊർജ്ജിതമാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ ഡ്രോണുകളും ഉപയോഗിച്ചു തുടങ്ങി

രേര വളണ്ടിയർ പാസ് നൽകുന്നത് പൊലീസുമായി കൂടിയാലോചന നടത്തി വേണമെന്ന് മന്ത്രി എ

കൊറോണ വൈറസ് ബാധയുടെ അപകടം ജനങ്ങൾക്ക് സ്വയം വിലയിരുത്തുവാൻ കഴിയുന്ന ആരോഗ്യ സേതു ആപ്പ് ജനങ്ങൾ ഡൌൺലോഡ് ചെയ്യണമെന്ന് മന്ത്രാലയം അറിയിച്ചു

ഇതുവരെ രോഗബാധയുള്ളവർ തുമ്മുമ്പോഴുമാണ് ചുമയ്ക്കുമ്പോഴും രോഗം വ്യാപിക്കുന്നതെന്നായിരുന്നു റിപ്പോർട്ട്

മുഖ്യമന്ത്രിമാരുമായി കഴിഞ്ഞ ദിവസം നടത്തിയ വീഡിയോ കോൺഫറൻസിൽ ധനസഹായം സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിരുന്നു

രേര മലപ്പുറം ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതപ്പെടുത്തുന്നതിനും കോവിഡ് പ്രത്യേക ആശുപത്രികളുടെ സജ്ജീകരണങ്ങൾക്കുമായി ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ വീതം നൽകുമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും മന്ത്രി ഡോ

ജില്ലയിലെ മറ്റ് എം

എമാരും ഇത്തരത്തിൽ മുന്നോട്ട് വരണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷരുമായും പൊലീസ് ഇൻസ്പെക്ടർമാരുമായും വീഡിയോ സർക്കിൾ കോൺഫറൻസിംഗ് വഴി കലക്ടറേറ്റിൽ സംസാരിക്കുകയായിരുന്നു സ്പീക്കറും മന്ത്രിയും സ്ഥിതി നിയന്ത്രണ വിധേയമാകുന്നതുവരെ വരും ദിവസങ്ങളിലും ജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങാതെ സഹകരിക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു രുര കരീബിയൻ രാജ്യമായ ഹെയ്തിയിലെ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യൻ വംശജർ സുരക്ഷിതരാണന്ന് ഹെയ്തിയിലെ ഇന്ത്യൻ കൌൺസിൽ ജനറൽ അറിയിച്ചു

രുമ സൌജന്യ റേഷൻ വിതരണത്തിൽ ക്രമക്കേട് കാണിക്കുന്ന കടയുടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉത്തരമേഖല റേഷനിംഗ് ഡെപ്യൂട്ടി കൺട്രോളർ അറിയിച്ചു കാർഡുടമകൾ ബില്ലുകൾ കൃത്യമായി വാങ്ങി സൂക്ഷിക്കണം വിതരണം സംബന്ധിച്ച് കടകളിൽ വിശദമായ പരിശോധന നടത്തുമെന്നും അദ്ദേഹം കൽപ്പറ്റയിൽ പറഞ്ഞു രമ കൊല്ലം ജില്ലയിലെ നീണ്ടകര ശക്തികുളങ്ങര ഹാർബറുകളിൽ നിയന്ത്രിത മത്സ്യബന്ധനത്തിനും വിപണനത്തിനും ക്രമീകരണങ്ങളായി

രുമ കണ്ണൂർ സെൻട്രൽ ജയിലിലെ കൊറോണ നിരീക്ഷണ വാർഡിൽ നിന്നും ചാടിപ്പോയ പ്രതി പിടിയിലായി ചെറുകുന്ന് താവത്ത് വെച്ചാണ് ഇയാൾ പിടിയിലായത് മോഷണ കേസിൽ അറസ്റ്റിലായ ഉത്തർപ്രദേശ് ആമിർപൂർ സ്വദേശി അജയ് ബാബുവാണ് ഐസൊലേഷൻ വാർഡിന്റെ വെന്റിലേഷൻ തകർത്ത് കടന്ന് കളഞ്ഞത്

രദേ കോഴിക്കോട് പൂളക്കളവ് ജങ്ഷനിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിൽ ജില്ലാ കലക്ടർ സാംബശിവ റാവു പരിശോധന നടത്തി ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു രുര ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പരിശോധന കർശനമാക്കാൻ ആരോഗ്യവകുപ്പിനും പോലീസിനും ജില്ലാ കലക്ടർ നിർദേശം നൽകി